ഭാരതത്തിന്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻകി ബാത്തിൽ പ്രതിസന്ധികളുടെ സമയത്തും ഭാരതം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി

വിമർശനം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നടപടി അപലപനീയമെന്ന് ആഭ്യന്തർമന്ത്രി അമിത്ഷാ

ദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തെ അനുസ്മരിച്ചു

ഒരു ലക്ഷത്തി പതിനായിരത്തോടടുക്കുന്നു മരണ സംഖ്യ അഞ്ചുലക്ഷം കവിഞ്ഞു

ആപത്ത് ക്ടിക്ട് പലുത് തന്നെ ആയാലും നിസാർത്ഥതയോടെ സേവനം പ്ലെയ്യാൻ പ്രേരണ നൽകുന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരമ്മെന്നും ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ആപത്തിന്റെ സമയത്തും ഇന്ത്യ എല്ലാ മേഖലകളിലും സൃഷ്ടിയുടെ പ്രക്രിയ തുടരുകയാണെന്നും വിപത്തുകളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു

ഭാരതത്തിന്റെ മണ്ണിൽ കണ്ണ് വച്ചവർക്ക് കനത്ത തിരിച്ചടി നൽകി ഭാരതത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ ആരേയും അനുവദിക്കില്ലെന്ന് നമ്മുടെ വീരസൈനികർ കാണിച്ചുകൊടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു ലഡാക്കിൽ വീരമൃത്യു വരിച്ച വീരജവാൻമാരുടെ ശൌര്യത്തെ രാജ്യം മുഴുവൻ നമിക്കുന്നുവെന്നും ജവാൻമാർക്ക് ശ്രദ്ധാഞ്ജലിയർപ്പിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാജ്യരക്ഷാ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ നാം സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൊറോണക്കാലത്തെ ലോക്ഡൌണിൽ നിന്നും പുറത്തിറങ്ങി നാം ഇപ്പോൾ അൺലോക്കിന്റെ സമയത്താണ് കഴിയുന്നത് ലോക്ഡൌൺ കാലത്തേക്കാൾ കൂടുതൽ പുലർത്തേണ്ട സമയമാണിത്

ഖനനമേഖല കാർഷിക മേഖല എന്നിവയിലെ ചരിത്രപരമായ തീരുമാനങ്ങൾ വികസനത്തിന്റെ പുതിയ മാർഗ്ഗങ്ങൾ തുറക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ മഴക്കാലത്ത് പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാനുളള പ്രവർത്തനങ്ങൾക്ക് നാം തുടക്കമിടണം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഒരു വാർത്താ ഏജൻസിയ്ക്ക് നൽകിയ അഭിമുഖ്യത്തീലാണ് ശ്രീ ഷാ ഇങ്ങനെ പറഞ്ഞത്

എന്നാൽ ആ ഘട്ടത്തിലേയ്ക്ക് രാജ്യതലസ്ഥാനം പോകില്ലെന്നും സമൂഹവ്യാപനം ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു

വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തെ അനുസ്മരിച്ചു വിശദാംശങ്ങളുമായി സനൽപ്പി ഭാസ്കർ

വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അനുസ്മരിച്ചു വലിയ പണ്ഡിതനായിരുന്നു റാവു എന്നും അദ്ദേഹത്തെ കുറിച്ച് ഭാരതീയർ കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിമാസ റേഡിയോ സംവാദ പരിപാടിയായ മൻകി ബാത്തിലാണ് പ്രധാനമന്ത്രി റാവുവിനെ അനുസ്മരിച്ചത് നരസിംഹറാവുവിന് ഉപരാഷ്ട്രപതി എം

ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിൽ എത്തിയ കാലഘട്ടത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് മുൻകൈ എടുത്ത ഭരണാധികാരിയാണ് റാവുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു ലൈസൻസ് രാജിന്റെ കീഴിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അദ്ദേഹം നീക്കി ചുവപ്പുനാടകൾ ചുരുക്കി ഉപരാഷ്ട്രപതി സ്മരിച്ചു

ദേശീയ ആണവ സുരക്ഷയ്ക്ക് ശക്തമായ അടിത്തറയിട്ട അദ്ദേഹം വിദേശനയത്തിൽ ധീരമായ നീക്കങ്ങൾ നടത്തി

പഞ്ചാബിലും കശ്മീരിലും വിഘടനവാദം നിയന്ത്രിക്കുന്നതിലും ശക്തമായ നടപടികൾ റാവു സ്വീകരിച്ചുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മെക്സികോയിലും പാകിസ്ഥാനിലും മരണനിരക്കും രോഗബാധിതരുടെ എണ്ണവും കുത്തനെ കൂടുകയാണ്

അമേരിക്ക യു കെ കാനഡ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുളള ഇന്ത്യാക്കാരെയാണ് പ്രധാനമായും ഘട്ടത്തിൽ ഈ നാട്ടിലെത്തിക്കുക